മറ്റ് പ്രതികൾക്ക് തടവും പിഴയും

മഴക്കെടുതിയിലെ നാശനഷ്ടങ്ങളുടെ കണക്ക് ലഭിച്ച ശേഷം മാത്രമെ നഷ്ടപരിഹാര പാക്കേജ് പ്രഖ്യാപിക്കൂവെന്ന് മന്ത്രി ഇ ചന്ദ്രശേഖരൻ മഴക്കെടുതി ഇന്ന് ലോക്സഭ ചർച്ച ചെയ്യും

ഒന്നാം പ്രതി എ

ഐ ജിത കുമാർ രണ്ടാം പ്രതി സിവിൽ പൊലീസ് ഓഫീസർ ശ്രീകുമാർ എന്നിവർക്കാണ് പ്രത്യേക ജഡ്ജി എ നാസർ വധശിക്ഷ വിധിച്ചത് ഇവർക്കെതിരെ കൊല ക്കുറ്റം തെളിഞ്ഞതായി പ്രത്യേക ജഡ്ജി എ നാസർ ഇന്നലെ കണ്ടെത്തിയിരുന്നു നാലാം പ്രതി ഡി വൈ എസ് പി അജിത് കുമാറിനും അഞ്ചാം പ്രതി ഇ കെ സാബുവിനും ആറു വർഷം തടവും രണ്ടു ലക്ഷം രൂപ പിഴയും വിധിച്ചു

പാലീസ് മനുഷ്യാവകാശ ലംഘകർ ആകരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദേശിച്ചു

മൂന്നാം മുറ ഉൾപ്പെടെ തെറ്റുകൾ ഇല്ലാതെയാക്കി സേനയെ പുനഃസംഘടിപ്പിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ആധുനിക പൊലീസിങ് സംബന്ധിച്ച ദേശീയ സെമിനാർ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിന്റെ നല്ല അവസ്ഥ നിലനിർത്തുകയും സുരക്ഷ ഉറപ്പാക്കി ഓരോരുത്തരുടെയും അന്തസ്സും അവകാശവും സംര ക്ഷിക്കുക എന്നതുമാണ് പൊലീസിന്റെ ചുമതല പൊലീസി ന്റെയും സുരക്ഷാ ഏജൻസികളുടെയും മനുഷ്യാവകാശ ലംഘ നങ്ങളെപ്പറ്റി രാജ്യാവ്യാപകമായി തന്നെ പരാതി ഉയരുന്നു ണ്ടെന്നും മുഖ്യമന്ത്രി അഭിപ്രായപ്പെട്ടു

വയലുകൾ പരമാവധി സംരക്ഷിച്ചും തോട്ടിലെ വെള്ളമൊഴുക്കിന് തടസ്സമുണ്ടാക്കാതെയും ബൈപ്പാസ് നിർമ്മിക്കണമെന്നാണ് സ്ഥലം സന്ദർശിച്ച ക്ടേന്ദ്രസംഘം ആവ ശ്യപ്പെട്ടത് വനം പരിസ്ഥിതി മന്ത്രാലയത്തിലെ റിസർച്ച് ഓഫീ സർ ജോൺ ജോസഫിന്റെ നേതൃത്വത്തിൽ കേന്ദ്രസംഘം പ്രദേ ശത്ത് മൂന്നു ദിവസം സന്ദർശനം നടത്തിയിരുന്നു വയലിനെ രണ്ടായി വിഭജിക്കുന്ന തരത്തിൽ ബൈപാസ് നിർമ്മിക്കരുതെന്നും സംഘം ശുപാർശ നൽകി പരിസ്ഥിതി സംഘടനകളും കീഴാ റ്റൂർ സമരസമിതിയും മുന്നോട്ടുവെച്ച് ആശങ്കകൾ ന്യായമാണെന്ന് റിപ്പോർട്ടിൽ പറയുന്നു മഴക്കെടുതിയെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ നാശനഷ്ട ങ്ങളുടെ പൂർണമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രി ഇ ചന്ദ്ര ശേഖരൻ അറിയിച്ചു വെള്ളം ഇറങ്ങിയ ശേഷമെ യഥാർത്ഥ കണ ക്കുകൾ ശേഖരിക്കാൻ കഴിയൂവെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു മുഴുവൻ കണക്കുകൾ ശേഖരിച്ചശേഷമേ നഷ്ടപരി ഹാര പാക്കേജ് തീരുമാനിക്കൂവെന്നും മന്ത്രി വൃക്തമാക്കി മാലിനൃങ്ങൾ നീക്കം ചെയ്യാനും സാംക്രമിക രോഗങ്ങൾ തട യാനും ഗവ

വെള്ളം നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ കുടുങ്ങിയവരെ ക്യാമ്പി ലെത്തിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു

സംസ്ഥാന ചലച്ചിത്ര അവാർഡ്ദാന ചടങ്ങിൽ പങ്കെടുക്കാൻ മോഹൻലാലിന്റെ തീരുമാനം ഇന്നലെ മന്ത്രി എ കെ ബാലനു മായി ചർച്ച നടത്തിയപ്പോഴാണ് അദ്ദേഹം ഇക്കാരൃം അറിയിച്ച ത് തീരുമാനമെടുക്കുന്നതിനു മുമ്പ് അമ്മ ഭാരവാഹികളുമായി മോഹൻലാൽ ചർച്ച നടത്തിയിരുന്നു

ഗവൺമെന്റിന്റെ ഔപചാരിക ക്ഷണം ഇന്നുണ്ടാകും അവാർഡ്ദാന ചടങ്ങിൽ മോഹൻലാൽ പങ്കെടുക്കുന്നതിനെ തിരെ സംവിധായകൻ ഡോ ബിജു അടക്കം ചലച്ചിത്ര സാംസ്കാരിക പ്രവർത്തകർ രംഗത്തെത്തിയിരുന്നു മാധ്യമപ്രവർത്തക ഗൌരി ലങ്കേഷിനെ വധിച്ച കേസിൽ അറ സ്റ്റിലായ കർണാടക സ്വദേശി രാജേഷിനെ അടുത്തമാസം ആറു വരെ പൊലീസ് കസ്റ്റഡിയിൽ വിട്ടു

കഴിഞ്ഞ സെപ്റ്റംബർ അഞ്ചിനായിരുന്നു ഗൌരി ലങ്കേഷിനെ ബംഗളൂരുവിലെ വീടിനു മുന്നിൽവെച്ച് വെടി വെച്ചു കൊന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തിനോ പ്രതിപക്ഷ നേതൃപദവിക്കോ പിടിവാശിയില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി ന്യൂഡൽഹിയിൽ വൃക്തമാക്കി ബി ജെ പിയെ അധികാരത്തിൽ നിന്ന് മാറ്റിനിർത്താൻ പ്രതിപക്ഷനേതാക്കളിൽ ആരെയും പ്രധാ ന മന്ത്രി സ്ഥാന ത്തേക്ക് പിന്തുണക്കാൻ തയ്യാ റാ ണെന്ന് രാഹുൽഗാന്ധി പറഞ്ഞു മമതാ ബാനർജിയോ മായാവതിയോ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്നതിൽ കോൺഗ്ഗസിന് വിയോ ജിപ്പില്ലെന്നും അദ്ദേഹം അറിയിച്ചു രാഹുൽഗാന്ധിയെ പ്രധാന മന്ത്രി സ്ഥാനത്തേക്ക് ഉയർത്തികാണിക്കുന്നതിൽ ചില കക്ഷി കൾ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു ഈ സാഹചര്യത്തിലാണ് രാഹുൽഗാന്ധി വിശദീകരണം നൽകിയത് അയോധൃയിലെ രാമക്ഷേത്രത്തിൽ പ്രാർത്ഥിക്കാൻ മൌലികാ വകാശത്തിന്റെ അടിസ്ഥാനത്തിൽ അനുമതി നൽകണമെന്ന ബി ജെ പി നേതാവ് ഡോ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ ആവശ്യം ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു് ഹർജിയിലെ ഉത്തരവിനുശേഷം പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി അറിയിച്ചു മോസ്കുകൾ ഇസ്ലാമിന്റെ അവിഭാജ്യ ഭാഗമാണോ എന്ന ചോദൃത്തിന് മറു പടിയുണ്ടായ ശേഷം സ്ഥാമിയുടെ ആവശ്യം പരിഗണിക്കാമെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ പ്രത്യേക ബെഞ്ച് പറഞ്ഞു ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് സുബ്രഹ്മ ണ്യൻ സ്വാമി നൽകിയ ഹർജിയിലാണ് കോടതിയുടെ പ്രതിക രണം ജമ്മു കശ്മീരിലെ അനന്ത്നാഗിൽ സൈന്യം രണ്ട് ഭീകരരെ വെടിവെച്ചു കൊന്നു ഇന്നു പുലർച്ചെ സൈനിക താവളങ്ങൾക്കു നേരെ ആക്രമണത്തിന് തുനിഞ്ഞ ഭീകരരെയാണ് സൈനൃം വധി ച്ചത്

മൂന്ന് ലഷ്കർ ഇ ത്വയ്ബ ഭീകരർ പ്രദേശത്ത് ഒളിഞ്ഞിരിക്കുന്നതായി റിപ്പോർട്ടുണ്ട്

പാസ്പോർട്ട് വിചാരണക്കോടതിയിൽ സമർപ്പിക്കാനും ആഴ്ചയിൽ രണ്ടു ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥർക്കു മുമ്പിൽ ഹാജരാകാനും ജാമൃവൃവസ്ഥയിൽ പറയുന്നു ഇരയെയോ ബന്ധുക്കളെയോ സാധീനിക്കരുതെന്നും കോടതി നിർദേശിച്ചു മിസോറാം ഗവൺണ്ണർ കുമ്മനം രാജശേഖരൻ ഇന്ന് കണ്ണൂർ ജില്ലയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കും ചാലാട് മൂകാം ബിക ബാലിക സദനത്തിന്റെ വൈദേഹി സഭാഗ്രഹം ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പ്ലാസ്റ്റിക്ക് മുക്ത പ്രചരണ പരിപാടിയുടെ ഉദ്ഘാ ടനവും നിർവ്വഹിക്കും

അത്തരമൊരു ചർച്ച പാർട്ടി ക്കുള്ളിൽ നടന്നിട്ടില്ല ഒരോ മാസവും പാർട്ടി ദേശീയ നേതൃത്വ വുമായി ചർച്ച നടത്തുന്നത് പതിവാണെന്നും കഴിഞ്ഞ ദിവസ ത്തേതും അത്തരമൊരു കൂടിക്കാഴ്ച ആയിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു ഒഡേപെക്കിന്റെ വെബ് പോർട്ടൽ ഉദ്ഘാടനവും പാക്കേജ്ഡ് ടൂർ സംബന്ധിച്ച് തോമസ് കുക്ക് ഇന്ത്യാ പ്രൈവറ്റ് ലിമിറ്റഡുമായി ഒഡേപെക്കിന്റെ ധാരണാപത്രം ഒപ്പിടലും ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും മന്ത്രി ടി പി രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടികളെ ഊട്ടി യിലേക്ക് തട്ടിക്കൊണ്ടു പോയി പീഡിപ്പിച്ച കേസിൽ രണ്ടു പേരെ മാനന്തവാടി പൊലീസ് അറസ്റ്റു ചെയ്തു കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി അമൽ വളയം സ്വദേശി റിജു എന്നിവരാണ് പിടിയിലാ യത്

കൊല്ലം കരുനാഗപ്പള്ളിയിൽ സ്കൂൾ ്വിദ്യാർത്ഥിനിയെ കടന്നു പിടിക്കാൻ ശ്രമിച്ച യുവാവ് പിടിയിലായി തഴവ സ്വദേശി സുബ്രഹ്മണ്യനാണ് പിടിയിലായത് സിസിടിവി ദൃശ്യങ്ങൾ ഉപ യോഗിച്ചാണ് ഇയാളെ കുടുക്കിയതെന്ന് പൊലീസ് അറിയിച്ചു

ഇവിടെ ദുരിതാശ്ചാസ ക്യാമ്പുകളുടെ പ്ര വർത്തനത്തിന് പ്രതിദിനം രണ്ടു കോടി രൂപയോളം ചെലവാകു ന്നുണ്ടെന്ന് മന്ത്രി ജി

ദുരിതം തീരും വരെ കൃാമ്പുകൾ പ്രവർത്തിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു യോഗ അസോസിയഷൻ ഓഫ് കേരളയുടെ മൂന്നാമത് സംസ്ഥാന യോഗ ചാമ്പൃൻഷിപ്പ് ശനി ഞായർ ദിവസങ്ങളിൽ കണ്ണൂരിൽ നടക്കും

ആറ് ഇനങ്ങളിലാണ് മത്സരം

ബദറിയ ദർസിൽ പഠിക്കുന്ന മുഹമ്മദാണ് മരിച്ചത് ചരക്ക് ലോറി ഉടമകളുടെ പണിമുടക്ക് അവസാനിപ്പിക്കുന്ന തിന് തിരുവനന്തപുരത്ത് ഇന്ന് വൈകീട്ട് മന്ത്രി എ

ശശീ ന്ദ്രൻ സമരം നടത്തുന്ന സംഘടനകളുമായി ചർച്ച നടത്തും സമരം സംസ്ഥാനത്തേക്ക് അവശ്യ വസ്തുക്കൾ എത്തിക്കുന്നത് പ്രതസന്ധിയിലാക്കിയിട്ടുണ്ടെന്ന് മന്ത്രി കോഴിക്കോട് പറഞ്ഞു

അവശ്യ വസ്തുക്കളുടെ ക്ഷാമം നേരിടാൻ കെ എസ് ആർ ടിസിൽ പച്ചക്കറികൾ ഉൾപ്പടെ അത്യാവശൃ വസ്തുക്കൾ എത്തി ക്കുന്നതിനെകുറിച്ച് പരിശോധിക്കാൻ കെ എസ് ആർ ടി സി എംഡിയോട് ആവശ്യപ്പെടുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാന വിനോദ സഞ്ചാർ വികസന കോർപ്പറേഷന്റെ ആഭി മുഖൃത്തിൽ സ്ത്രീകൾക്കായി സ്ത്രീകൾ നടത്തുന്ന ഗവൺമെന്റ് ഹോട്ടൽ പദ്ധതി ആരംഭിക്കും ഹോസ്റ്റൽ എന്ന എന്ന പേരിൽ ആരംഭിക്കുന്ന ഹോട്ടൽ പദ്ധതിയുടെ ഉദ്ഘാടനം തിരുവനന്തപു രത്ത് ഇന്ന് വൈകീട്ട് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നിർവ്വഹി ക്കും രാജ്യത്ത് ആദ്യമായാണ് ഗവൺമെന്റ് തലത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ഹോട്ടൽ സംരംഭം നടപ്പാക്കുന്നതെന്നും ആറ് മാസത്തിനകം പ്രവർത്തനം ആരംഭിക്കുമെന്നും കെ ടി ഡി സി ചെയർമാൻ എം വിജയകുമാർ അറിയിച്ചു